ഉന്നത വിദ്യാഭ്യാസരംഗത്ത് ഗവേഷണത്തിന് കൂടുതൽ നിക്ഷേപം നട ത്തുന്നുണ്ടെന്ന് ഗവർണർമാർ ഉറപ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ അനുവദിച്ചതിനെതിരെ സ്മർപ്പിച്ച ഹർജി രാവിലെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും ഷഹ്ല ഷെറിന് പാമ്പുകടിയേറ്റ ബത്തേരി ഹയർസെക്കന്ററി സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിക്കാൻ സർവകക്ഷിയോഗ തീരുമാനം ദീർഘകാലം നിലനിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി

തൊഴിലവസരവും സ്റ്റാർട്ട് അപ് സംസ്കാരവും വർദ്ധിപ്പിക്കുന്നതിന് ഉന്നതവിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണത്തിന് കൂടുതൽ നിക്ഷേപം നട ത്തുന്നുണ്ടെന്ന് സർവകലാശാലാ ചാൻസലർകൂടിയായ ഗവർണർമാർ ഉറ പ്പുവരുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ആദിവാസി മേഖലകളിലെ വികസനത്തിന് അനുയോ ജ്യമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു കായിക യുവജന വികസനത്തിന് പുരോഗമന പദ്ധതികൾ ആവി ഷ്കരിക്കാനും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണർ അനുവദിച്ചതിനെതിരെ ശിവസേനയും എൻ സി പിയും കോൺഗ്രസും സംയുക്തമായി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും

രമണ നേതൃത്വം നൽകുന്ന ബഞ്ച് കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസു മാരായ അശോക് ഭൂഷൺ സഞ്ജിവ് ഖന്ന എന്നിവരാണ് ബഞ്ചിലെ മറ്റ് അംഗങ്ങൾ ഹർജി ഇന്നലെ അടിയന്തരമായി വാദം കേട്ട മൂന്നംഗ ബഞ്ച് ഭൂരിപക്ഷം അവകാശപ്പെട്ട് ദേവേന്ദ്ര ഫഡ്നാവിസ് ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിക്ക് സമർപ്പിച്ച കത്തും ഫഡ്നാവിസിനെ ഗവൺമെന്റുണ്ടാ ക്കാൻ ക്ഷണിച്ച ഗവർണറുടെ കത്തും ഇന്ന് രാവിലെ ഹാജരാക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോടും മഹാരാഷ്ട്ര ഗവൺമെന്റിനോടും ആവശ്യപ്പെട്ടിരുന്നു

ഈ രണ്ടു കത്തുകളും പരിശോധിച്ചശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സുപ്രീം കോടതി പ്രറഞ്ഞു ് സുപ്രീം കോടതി ഇന്ന് വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കെ മഹാരാഷ്ട്രയിൽ നേതാക്കൾ തിരക്കിട്ട കൂടിയാലോചന തുടരുകയാണ് എൻ സി പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി രാത്രി വൈകി ചർച്ചനടത്തി മുഖ്യമന്ത്രിയുടെ ഔദ്യോ ഗിക വസതിയിൽ നടന്ന ചർച്ചയിൽ സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാക്കളും പങ്കെടുത്തു കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പിന്നീട് ടിറ്ററിൽ അറിയിച്ചു എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയും എൻ സി പി എം എൽ എമാരെ പാർപ്പിച്ച ഹോട്ടലിൽ എത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേലും മല്ലികാർജ്ജുൻ ഗാർഖെയും പാർട്ടി എം എൽഎ മാരുമായും കോൺഗ്രസ് നേതാക്കളുമായും ചർച്ച നടത്തുകയുണ്ടായി അതേസമയം എൻ സി പിയും ശിവസേനയും എം എൽ എമാരെ നേരത്ത പാർപ്പിച്ച ഹോട്ടലിൽ നിന്ന് മാറ്റിയതായും റിപ്പോർട്ടുണ്ട് ് മഹാരാഷ്ട്രയിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന പ്രശ്ന മേയില്ലെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത്പവാർ വ്യക്തമാക്കി കോൺഗ്ര സുമായും ശിവസേനയുമായും കൂട്ടുചേർന്ന് മന്ത്രിസഭയുണ്ടാക്കാൻ എൻ സി പി ഏകകണ്ഠമായി തീരുമാനിച്ചതാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയി ച്ചു ബി ജെ പി എൻ സി പി സഖ്യം ഇപ്പോഴും നിലവിലുണ്ടെന്നും സംസ്ഥാ നത്ത് അടുത്ത അഞ്ചുവർഷം സ്ഥിരതയുള്ള ഗവൺമെന്റ് സഖ്യം പ്രദാനം ചെയ്യുമെന്നും അജിത്പവാർ ട്വീറ്റ് ചെയ്തതിനോട് പ്രതികരിക്കുകയായി രുന്നു ശരത് പവാർ അജിത് പവാറിന്റെ പ്രസ്താവന തെറ്റാണെന്നും ജന ങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ അദ്ദേഹം മനഃപൂർവ്വം ശ്രമി ക്കുകയാണെന്നും ശരത്പവാർ പറഞ്ഞു താൻ ഇപ്പോഴും എൻ സി പിയി ലാണെന്നും ശരത്പവാറാണ് തങ്ങളുടെ നേതാവാണെന്നും അജിത് പവാർ ട്വിറ്ററിൽ അറിയിച്ചിരുന്നു അജിത് പവാർ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാ ക്കുകയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ചവാനും മുംബൈയിൽ കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ് ് ് ് ് ് ദേവേന്ദ്ര ഫഡ്നാവിസ് നിയമസഭയിൽ ഭൂരിപ്പക്ഷം തെളിയി ക്കുമെന്ന് കേന്ദ്രമന്ത്രിയും ആർ പി ഐ അധ്യക്ഷനുമായി രാംദാസ് അഥ വാലെ കാൺപൂരിൽ അവകാശപ്പെട്ടു അതേസമയം ഭൂരിപക്ഷം തെളിയി ക്കുന്നതിൽ നിന്ന് ബി ജെ പി ഒളിച്ചോടുകയാണെന്ന് കോൺഗ്രസ് മുഖ്യ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ന്യൂഡൽഹിയിൽ കുറ്റപ്പെടു ത്തി ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഏക പ്പരിഹാരം വിശ്വാസ വോട്ടെടുപ്പ് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു എൻ സി പിയുടെ മൂന്ന് എം എൽ എമാരെ ചാർട്ടേഡ് വിമാന ത്തിൽ ഡൽഹിയിലേക്ക് കൊണ്ടുപോയത് ബി ജെ പിയാണെന്ന് പാർട്ടി വക്താവ് നവാബ് മാലിക് മുംബൈയിൽ ആരോപിച്ചു ഈ മൂന്ന് എം എൽ എമാരും ഇപ്പോൾ പാർട്ടിയോടൊപ്പമുണ്ടെന്ന് അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു ് ഷഹ്ല ഷെറിന് പാമ്പു കടിയേറ്റ ബത്തേരി സർവജന ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിക്കാൻ ബത്തേരിയിൽ ചേർന്ന സർവകക്ഷിയോഗം തീരുമാനിച്ചു

യു പി സ്കൂളിന് ഒരാഴ്ചത്തേക്കു കൂടി അവധി നൽകി അടുത്ത മാസം രണ്ടിന് ക്സാസുകൾ ആരംഭിക്കും ഹൈസ്കൂൾ ഹയർ സെക്കന്ററി ക്ലാസുകൾ നാളെ തുറക്കും സ്കൂളിൽ ഇടക്കാല പ്രിൻസിപ്പലിനെ നിയമിക്കാനും തീരുമാനമായി ് ദീർഘ കാലം നില നിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി ജി

സംസ്ഥാനത്ത് കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം വന്നതിനാൽ റോഡ് നിർമ്മാണം ദുഷ്കരമാവുകയാണെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ പയ്യന്നൂർ വെള്ളൂർ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ത്ത ഒഡീഷ മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു

ഇന്ന് ചെന്നൈയിൻ എഫ് സി ഹൈദരബാദിനെ നേരിടും ് ് ് ് ് ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ഷൂട്ടിംഗ് ബോൾ ദേശീയ ചാമ്പ്യൻഷി പ്പിൽ കേരള പുരുഷ ടീമിനെ ടി

ബാപ്പു മുഹമ്മദ് നയിക്കും കേന്ദ്ര കായിക യുവജന മന്ത്രാലയത്തിന് കീഴിൽ അടുത്ത വ്യാഴം വെള്ളി ദിവ സങ്ങളിൽ ഹിമാചൽ പ്രദേശിലാണ് മത്സരം

നാടിനെ ലഹരി വിമുക്തമാക്കേണ്ടതെന്ന് മന്ത്രി എ

സാംസ്കാ രികവും കായികവുമായ അവബോധം താഴെ തലങ്ങളിൽ വളർത്തിയെടു ക്കുന്നതിലൂടെ ലഹരി വിമുക്ത സംവിധാനം മെച്ചപ്പെടുത്താനാകുമെന്ന് മന്ത്രി പറഞ്ഞു

മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന തിമ്മൻചാൽ മണ്ണ്ട് ജല സംരക്ഷണ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഫല പ്രദമായ പരിഹാരം കണ്ടെത്തുന്നതിനായി രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം കർഷക ക്ഷേമ ബോർഡ് രൂപീകരിക്കുന്നതെന്നും മന്ത്രി അറി യിച്ചു

ജനങ്ങൾക്ക് ലഭിച്ചു വരുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കില്ലെന്ന് മന്ത്രി ടി എം തോമസ് ഐസക് വൃക്തമാക്കി

മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനം ക്യിഫ്ബിയിലൂടെ സാധ്യമാകുമെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് പറഞ്ഞു ഏത് തരത്തിലുള്ള എതിർപ്പുകളുണ്ടായാലും കിഫ്ബിയിലൂടെ മുന്നേറാനാകുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂരിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ബെഫിയുടെ സംസ്ഥാനത്തസമ്മേളന ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പാലക്കാട് പറമ്പിക്കുളം മേഖലയിലെ ആദിവാസികൾ അനുഭ വിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങൾ മനസ്റ്റിലാക്കുന്നതിന് സംസ്ഥാന മനു ഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം പി മോഹനദാസ് ഇന്ന് വിവിധ ആദിവാസി കോളനികൾ സന്ദർശിക്കും നാളെ രാവിലെ വിവിധ വകുപ്പു കളിലെ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗവും അദ്ദേഹം വിളിച്ചുചേർത്തി ട്ടുണ്ട് ആദിവാസി ഊരുകളിലെ മൂപ്പൻമാരിൽ നിന്ന് കമ്മീഷൻ നേരിട്ട് കാര്യ ങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും

റാക്കാൻ കണ്ണൂർ കനകമലയിൽ രഹസ്യയോഗം ചേർന്ന് ഗൂഡാലോചന നടത്തിയെന്ന കേസിൽ കൊച്ചി എൻ ഐ എ കോടതി ഇന്ന് വിധി പറയും കേരള തമിഴ്നാട് സ്വദേശികളായ ഏഴ് പേരാണ് പ്രതികൾ

ആദ്യ കുറ്റപത്രത്തിൽ എട്ട് പ്രതികളുണ്ടായിരുന്നു ഇവരിൽ ഒരാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല രാജ്യദ്രോഹം ഗൂഡാ ലോചന യു എ പി എയിലെ വിവിധ വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് ഇവർക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചത്

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ഹെലൻ കെല്ലർ സ്മാരക അന്ധവിദ്യാലയത്തിൽ ആരംഭിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ആശയ രൂപീകരണ ക്സാസ് റൂം ഇന്ന് രാവിലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

ഷ്കരണം ആവശ്യപ്പെട്ട് മറ്റന്നാൾ മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം മാറ്റിവെച്ചതായി കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ആരോഗ്യമന്ത്രി നിയമസ്ഭയിൽ നടത്തിയ പ്രസ്താവനയുടെയും വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ ചർച്ച നടത്താമെന്ന് മന്ത്രി നൽകിയ ഉറപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് സമരം മാറ്റിവെച്ചതെന്ന് സംഘടന തിരുവനന്തപുരത്ത് അറിയിച്ചു

ദേവൻ രാമചന്ദ്രൻ ശബരിമലയിലെത്തി തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയ സൌകര്യങ്ങൾ വിലയിരുത്തി പമ്പയിലും സന്നിധാനത്തുമടക്കം ഒരുക്കിയ സൌകര്യങ്ങളിൽ അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചതായി ദേവസ്വം ബോർഡ് അറിയിച്ചു

മന്ത്രി എ

മൊയ്തീൻ ഇന്ന് ഇടത്താവളം ഉദ്ഘാടനം ചെയ്യും